രണ്ടാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലേയ്ക്കുള്ള പരസ്യ പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം

തിരഞ്ഞെടൂപ്പ് പ്രചരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെത്തും

രാജ്യത്തെ ജനങ്ങളുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി എൻ

എ നരേന്ദ്രമോദി കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാൽ ആദായ നികുതി വർധിപ്പിച്ച് ഇടത്തരക്കാരെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് രാഹുൽഗാന്ധി

വിലക്കിയത് കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിതൃനാഥ് ബി

പി അധൃക്ഷ മായാവതി എസ് പി നേതാവ് അസംഖാൻ എന്നിവരെ

നാളെ നിശബ്ദ പ്രചാരണമാണ് വോട്ടെടുപ്പ് നടക്കുന്ന ബൂത്തുകളിൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

അതിനിടെ ആറാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്നിറങ്ങും

പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനും അടക്കമുള്ള ദേശീയ നേതാക്കൾ ഈ മണ്ഡലങ്ങളിലെ പ്രചരണ രംഗത്ത് സജീവമാണ് ഒരു റിപ്പോർട്ട്

ഒഡീഷയിലെ സമ്പൽപൂർ ഭുവനേശ്വർ എന്നിവിടങ്ങളിലെ പൊതു പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കും

ഭാഡപാരയിലേയും തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും അദ്ദേഹം സംസാരിക്കും ഇന്നലെ കേരളത്തിലെത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇ ന്ന് രാവിലെ മാവേലിക്കര മണ്ഡലത്തിലെ പത്തനാപുരത്തും പത്തനംതിട്ടയി ലും പ്രസംഗിക്കും

നാളെ അദ്ദേഹം കണ്ണൂരിലും വയനാട് മണ്ഡലത്തിലും സംഘടിപ്പിക്കുന്ന യോഗങ്ങളിൽ സംസാരിക്കും എൻഡിഎ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രിമാരായ തവർചന്ദ് ഗെഹ്ലോട്ടും പീയൂഷ് ഗോയലും കേരളത്തിലെത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി

എ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ഡി എ ഗവൺമെന്റിന്റെ ആദ്യ അഞ്ച് വർഷം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാണ് പ്രാമുഖ്യം നൽകിയത് എന്നും ഇനി അടുത്ത അഞ്ച് വർഷം ഇന്തൃയിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾക്കും അഭിലാഷങ്ങൾക്കുമായിരിക്കും പ്രാധാന്യം നൽകുക എന്നും ശ്രീ

കർഷകരുടെ ക്ഷേമം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമായിരിക്കും നടത്തുകയെന്നും ദൂരദർശൻ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ശ്രീ

പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി ഗവൺമെന്റ് നടപ്പിലാക്കിയത് വഴി ചെറുകിട ഇടത്തരം കർഷകരുടെ വരുമാനത്തിന് സഹായം നൽകുകയാണ് ലക്ഷ്യമിട്ടത്

ഗുജറാത്തിൽ ഭാവ്നഗർ ജില്ലയിലെ മഹുവയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ

ജെ പി അധ്യക്ഷൻ അമിത്ഷാ ഗുജറാത്തിലെ ഗിർ സോമനാഥ് ജില്ലയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം റഫാൽ വിഷയത്തിലെ സുപ്രീംകോടതി വിധിയെപ്പറ്റി ശ്രീ രാഹുൽ കള്ളം പ്രചരിപ്പിക്കുകയായിരുന്നു എന്നും വിഷയത്തിൽ കോടതി വിധിയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു

ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ മന്നേക്കാ ഗാന്ധി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബി

പി നേതാവ് അസംഖാൻ എന്നിവരെയാണ് പ്രപാരണയോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയത് വിലക്ക് ഇ്ന്ന് മുതൽ പ്രാബലൃത്തിൽ വരും

മീററ്റിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ തന്റെ നേട്ടങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന നോട്ടീസ് വിതരണം ചെയ്തു എന്നതാണ് യോഗി ആദിത്യനാഥിനെതിരെയുള്ള ആരോപണം

ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ദിയോബന്ദിൽ അവർ നടത്തിയ പ്രസംഗത്തിനിടയ്ക്ക് ഒരു പ്രത്യേക മതവിഭാഗത്തോട് എസ് പി ബി

പി ആർ എൽ ഡി സഖ്യത്തിന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് നോട്ടീസ് വിതരണം ചെയ്തു എന്നതാണ് മായാവതിയ്ക്കെതിരെയുള്ള ആരോപണക ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിലെ തിരഞ്ഞെടുപ്പ് യോഗത്തിലെ പ്രസംഗത്തിന്റെ പേരിലാണ് മനേകാഗാന്ധിക്ക് രണ്ടു ദിവസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്

ജെ പി സ്ഥാനാർത്ഥി ജയപ്രദയെ അവഹേളിക്കുന്ന തരത്തിൽ പ്രസംഗിച്ചതിനാണ് ശ്രീ

പഞ്ച്കുല സിർസ ഡൽഹി എന്നിവിടങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ഫ്ളാറ്റും സ്ഥലവും വസതിയുമാണ് കണ്ടുകെട്ടിയത് കള്ളപ്പണം തടയൽ നിയമത്തിന് കീഴിലാണ് നടപടി കൈക്കൊണ്ടത്

അതേസമയം കോൺഗ്രസ് എ എ

സഖ്യത്തെ വളച്ചൊടിക്കാനാണ് ആളു ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ശ്രമിക്കുന്നതെന്ന് ശ്വീർാഹ്യിൽഗാന്ധി ടിറ്ററിൽ കുറിച്ചു

ജെ

യെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് ഇരുപാർട്ടികളും തമ്മിൽ ഡൽഹിയിൽ സഖ്യത്തിലേർപ്പെടുന്നതെന്നും ശ്ച്ച് രാഹുൽഗാന്ധി പറഞ്ഞു

എസ് ഘടിപ്പിക്കുകയെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ വി

കാന്തറാവു ഭോപ്പാലിൽ അറിയിച്ചു

കരാറിൽ ഗവൺമെന്റും സംഘടനകളും തമ്മിൽ ഇന്നലെ ഒപ്പുവച്ചു

ഗാർഡിനെ സാമ്പത്തികമായോ അല്ലാതെയോ റവലുഷണറി സഹായിക്കുന്നവരെ അമേരിക്കൻ നിയമപ്രകാരം ശിക്ഷിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്

ഡി എഫ് സ്ഥാനാർത്ഥി ഡോ ശശി തരുരിന്റെ ആരോഗ്യനില തൃപ്തികരമാ ണെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചു തലവേദന യുള്ളതിനാലും രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് പതിവായി കഴിക്കു ന്നതിനാലും അദ്ദേഹം ന്യൂറോ സർജറി ഐസിയുവിൽ നിരീക്ഷണത്തിലാണ്

ഇന്നലെ രാവിലെ തിരുവനന്തപുരം ഗാന്ധാരി അമ്മൻ കോവിലിൽ തുലാഭാരം നടത്തുമ്പോഴായിരുന്നു അപകടം ഉണ്ടായത്

എന്നാൽ ഒരു ഓവർ ബാക്കിനിൽക്കെ അഞ്ചു വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു

എട്ടു മൽസരങ്ങളിൽ ഏഴാം മൽസരവും തോറ്റ ബാംഗ്ലൂർ രണ്ടു പോയിന്റുമായി അവസാന സ്ഥാനത്തു തുടരുന്നു